പ്രധാനമന്ത്രിയുടെ ഹൂസ്റ്റൺ പ്രീപാടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ടൊണാൾഡ് ടെംപ് പങ്കെടുക്കുന്നത് ഇന്തോ അമേരിക്കൻ സ്മൂഹ്ത്തിന്റെ നേട്ടമെന്ന് കേന്ദ്രമന്ത്രി എസ്

സമഗ്ര ട്രോമാകെയർ സംവിധാനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു

ദശാബ്ദങ്ങൾ നീണ്ട പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു

നർമ്മദ നദിയിലെ സർദാർ സരോവർ അണക്കെട്ട് ഇതിനുദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു വോയിസ് ഗുജറാത്തിലെ നർമ്മദ ജില്ലയിൽ സർദാർ സരോവർ അണക്കെട്ടിലെ നമാമി ദേവി നർമ്മദേ മഹോത്സവത്തിൽ പങ്കെടുക്കവേയാണ് പ്രധാനമന്തി ഇത് പറഞ്ഞത്

ഗുജറാത്തിന് പുറമെ മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ സംസ്ഥാനങ്ങൾക്കും അണക്കെട്ട് പ്രയോജനകരമാണ്

അണക്കെട്ടും സമീപത്തെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഏകത പ്രതിമയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി വികസിച്ച് വരികയാണ്

ഈ പ്രദേശത്ത് പുനരുപയോഗ സാധ്യമല്ലാത്ത പ്ലാസ്റ്റിക് ഒഴിവാക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ജനക്ഷേമത്തിനായി ഗവൺമെന്റ് തുടർന്നും മുന്നിലുണ്ടാകുമെന്നും വൃക്തമാക്കി

അണക്കെട്ട് സംഭരണശേഷി ക്വിഞ്ഞതിന്റെ ആഘോഷം ഗുജറാത്ത് സംസ്ഥാനം ന്മാ്മി ദേവി നർമ്മദേ മഹോത്സവമായി കൊണ്ടാടുകയാണ്

ആരോഗ്യവും സന്തോഷവും ഉണ്ടാകട്ടെ എന്നാശംസിച്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും ഇനിയും ഏറെ വർഷങ്ങൾ രാജ്യസേവനം നടത്താൻ പ്രധാനമന്ത്രിയ്ക്ക് കഴിയട്ടെയെന്ന് പറഞ്ഞു രാഷ്ട്ര നിർമ്മാണത്തിൽ മഹത്തായ സംഭാവനയാണ് ശ്രീ മോദി നൽകുന്നതെന്ന് ആഭ്യന്തര മന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞു ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വം വലിയ പ്രചോദനം നൽകുന്നുണ്ടെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു കോൺഗ്രസ് അദ്ധ്യക്ഷ സോണിയാ ഗാന്ധി മുൻ അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവർ പ്രധാനമന്ത്രിയ്ക്ക് ദീർഘായുസ്സും ആരോഗ്യവും നേർന്നു മുൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെൻഡുൽക്കറും ഇന്ത്യൻ നായകൻ വിരാട് കോലിയും പ്രധാനമന്ത്രിയ്ക്ക് ആശംസ നേർന്നു

ഇന്ത്യൻ സംസ്കാരവും ആചാര മര്യാദകളും മൂലൃങ്ങളും അവർ പ്രതിനിധാനം ചെയ്യുന്നുണ്ടെന്നും സ്ലൊവേനിയ സന്ദർശനത്തിനിടെ ലൂബ്ലിയാനയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിൽ നിന്ന് പ്രവാസി സമൂഹത്തിന് എല്ലാ സഹായങ്ങളും നൽകും സാങ്കേതിക വിദ്യയുടെ വികാസത്തോടെ നയതന്ത്ര കാര്യാലയത്തിൽ നിന്നുളള സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായിട്ടുണ്ട്

എസ് ഡോളർ സമ്പദ്വ്യവസ്ഥയായി മാറാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്ന നിർമ്മാതാക്കളുടെ സൊസൈറ്റിയുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരൂന്നു അ്ദ്ദേഹം

പ്രസിഡന്റ് അഷ്റഫ് ഗനി റാലിയിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും അദ്ദേഹം സുരക്ഷിതനാണ് ഈ ആക്രമണം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കാബൂളിലെ അമേരിക്കൻ എംബസിയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരെന്ന് വൃക്തമായിട്ടില്ല

കൂടുതൽ വിവരങ്ങളുമായി കവിതസുനു

ജമ്മുകാശ്മീരിൽ സമാധാനം പുലരുന്നുണ്ടെന്നും ശ്രീ

ജനങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്ന് നോക്കി കേന്ദ്രഗവൺമെന്റ് തീരുമാന്ടങ്ങൾ ഒരിക്കലും എടുക്കാറില്ല

ഇത്തരം തീരുമാനങ്ങളാണ് രാജ്യത്ത് മാറ്റം കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാന ഘടകം പ്രതിശീർഷ ദേശീയവരുമാനം എൻപതിനായിരം രൂപയിൽ നിന്നും ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപയായി ഉയർന്നെന്നും ശ്രീ

എ ഗവൺമെന്റിന്റെ കാലത്ത് അഴിമതിക്കേസുകൾ നിരവധിയായിരുന്നെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതിനാൽ രാജ്യത്തിന്റെ വികസനത്തിനായി അവർക്ക് തീരുമാനങ്ങളെടുക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ശ്രീ

ഡി

എന്നാൽ അപകടത്തിൽ ആർക്കും പരിക്കുള്ളതായി റിപ്പോർട്ടില്ല

രാജസ്ഥാനിൽ ബി

പിയുടെ ആറ് എം എൽ എമാർ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്ന സ്ട്രഫചര്യത്തിലാണ് മായാവതിയുടെ വിമർശനം

ബി